അൺലോക്ക് നാലാംഘട്ടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച അൺലോക്ക് നാലാംഘട്ട നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേരളത്തിലും ബാധകമാക്കി ഉത്തരവിറങ്ങി

രാജ്യത്ത് കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കേന്ദ്ര ആരോഗൃമന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്

പാഠപുസ്തകങ്ങൾക്ക് അതീതമായി വിവിധ വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത്

അൻവർ സാദത്ത് ആകാശവാണിയോട്

വ്യാപാരം നിക്ഷേപം ഊർജ സഹകരണം ആരോഗ്യം സാങ്കേതികവിദ്യ എന്നിവയിലുള്ള പങ്കാളിത്തം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും നേരത്തെ അമേരിക്കൻ വൈസ്പ്രസിഡന്റ് മൈക്ക് പെൻസ് കേന്ദ്രമന്ത്രിമാരായ പിയൂഷ് ഗോയൽ എസ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

കോവിഡ് സാഹചരൃത്തിൽ നഗരവീഥിയിലെ പുലിക്കളി ഒഴിവാക്കിയെങ്കിലും അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയെന്ന ഫേസ്ബുക്ക് പേജിലാണ് വൈകിട്ട് മൂന്നു മുതൽ നാലു വരെ പുലിക്കളി അരങ്ങേറുന്നത്

കേരള തീരത്തും ലക്ഷദ്വീപ് മേഖലയിലും കട്ല്പിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്

സ്വർണ വിലയിൽ മാറ്റമില്ല